പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള അറിയിച്ചു

തമിഴ്നാട്ടിൽ ടി ടി

മഞ്ചേശ്വരം എം

ശബരിമലയിൽ രക്തം ചിന്തുമെന്ന രാഹുൽ ഈശ്വറിന്റെ പ്രസ്താവന രാജ്യദ്രോഹക്കുറ്റത്തിന് തുല്യമാണെന്ന് മന്ത്രി കട കം പള്ളി സുരേന്ദ്രൻ പറഞ്ഞു ശബരിമലയെ രക്തപങ്കിലമാക്കി കളങ്കപ്പെടുത്താനുളള വലിയ ഗൂഢാലോചനയ്ക്കാണ് രാഹുൽ ഈശ്വർ നേതൃത്വം നൽകിയതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു നേരത്തെ സംശയം മാത്രമായിരുന്നത് രാഹുലിന്റെ വെളിപ്പെടു ത്തലോടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു രാഹുൽ വെളിപ്പെടുത്തിയ പ്ലാൻ ബി ഗൂഢാ ലോചനകൾ ഇനിയും പുറത്ത് വരാനിരിക്കുന്നതേയുള്ളൂ രക്തം ഒഴുക്കി ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുമായിരുന്ന ശബ രിമലയെ അതിൽ നിന്ന് രക്ഷിച്ചത് പൊലീസിന്റെ സംയമ നമാണെന്ന് കടകംപള്ളി വ്യക്തമാക്കി

ക്ഷേത്രങ്ങളിലെ നിയന്ത്രണങ്ങൾ മൌലികാവകാശമ ല്ലെന്നും സുതാര്യമായ നടത്തിപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു വെളിപ്പെടുത്തലുകളിലെ ഗൂഢാലോചനകൾ അറിയാൻ പൊതുസമൂഹത്തിന് അവകാശമു ണ്ടെന്നും മന്ത്രി അറിയിച്ചു ശബരിമല വിഷയത്തിൽ ഗവൺമെന്റിന്റെ പിടിവാശി ഒഴിവാ ക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു അക്രമങ്ങളെ കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല സംഘർഷത്തിന്റെ വഴിയിലൂ ടെയല്ല വിശ്വാസികളുടെ താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ടാവണം ശബരിമല വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു മുഴു വൻ അയ്യപ്പ ഭക്ത രെയും സമൂഹ മധ്യ ത്തിൽ കരിവാരിത്തേക്കാനാണ് മന്ത്രി കടകംപള്ളിയുടെ പ്രസ്താവന യെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു വേണ്ടി വന്നാൽ രക്തം വീഴ്ത്തി അശുദ്ധമാക്കുമെന്ന് അറിയിച്ചവരെ അതിൽനിന്ന് പിൻതി രിപ്പിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും രാഹുൽ സ്വകാര്യ ചാനലി നോട് പറഞ്ഞു ഇത്തരം രീതികളല്ല ഗാന്ധിയൻ രീതിയാണ് സ്വീക രിക്കേണ്ടതെന്നാണ് അവരോട് പറഞ്ഞതെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി

പി കോടതിയെ സമീപിക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസി ഡണ്ട് പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് പറഞ്ഞു ഭക്തരെ നിയന്ത്രിക്കാനുള്ള എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നീക്കം കമ്മ്യൂ ണിസ്റ്റ് ചതിയാണെന്നും ശബരിമലയെ തകർക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തന്ത്രിമാരുടെ അവകാശങ്ങൾ എകെ

തന്ത്രികുടുംബാംഗങ്ങളെ മോശമായ വാക്കുകളിലൂടെ അപകീർത്തിപ്പെടുത്തിയ നടപടി ഒരു മുഖ്യമ ന്ത്രിക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറ ഞ്ഞു കോടതിയലക്ഷ്യ കേസിനെ ഭയപ്പെടുന്നില്ലെന്നും വിധിയെ വിമർശിക്കുകയെന്നത് ജനങ്ങളുടെ അവകാശമാണെന്നും ശ്രീധ രൻപിള്ള വ്യക്തമാക്കി സ്റ്റാലിനിസ്റ്റ് രീതിയിൽ ദേവസ്വം ബോർഡിനെ അടിച്ചമർത്തുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നതെന്നും ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി

സംസ്ഥാന ഹർത്താലിൽ വിവിധ ഇടങ്ങളിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചവരും പിടിയിലായവരിൽപെടുന്നു

ഇവ എല്ലാ ജില്ലകളിലെയും പൊലീസ് മേധാവികൾക്ക് അയച്ച് കൊടു ത്താണ് അറസ്റ്റ് നടപടികൾ തുടങ്ങിയത് തമിഴ്നാട്ടിൽ ടി ടി

എം കെ എം

എ മാരെ അയോഗ്യരാക്കിയ സ്പീക്കർ പി ധനപാലിന്റെ നടപടി മദ്രാസ് ഹൈക്കോടതി ശരി വെച്ചു ജസ്റ്റിസ് എം സത്യനാരായണനാണ് ഇതുസംബന്ധിച്ച സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് നേരത്തെ കേസ് പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി ജസ്റ്റിസ് എം സുന്ദർ എന്നിവര ടങ്ങിയ ബെഞ്ച് ഇക്കാര്യത്തിൽ വ്യത്യസ്ത വിധി പുറപ്പെടുവിച്ച തിനെ തുടർന്ന് കേസിൽ ഇടപെട്ട സുപ്രീംകോടതി വാദം കേൾക്കാൻ ജസ്റ്റിസ് എം സത്യനാരായണനെ നിയോഗിക്കുകയാ യിരുന്നു

എ മാർക്ക് അനുകൂലമായാണ് വിധി പ്രസ്താവിച്ചത്

വി ദിനകരൻ പക്ഷത്തെ എം

വിപ്പ് ലംഘിച്ചെന്ന പരാതിയിലായി രുന്നു സ്പീക്കറുടെ നടപടി

എൽ എ മാരോട് ആലോചിച്ച് വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുന്ന കാര്യം തീരു മാനിക്കുമെന്ന് ടി

വി ദിനകരൻ ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സാലറി ചലഞ്ചിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഗവൺമെന്റ് സുപ്രീംകോടതിയിൽ ഹർജി നൽകി പ്രളയാനന്തര പുനർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജീവനക്കാരെ ഒരു മാസത്തെ ശമ്പളം നൽകുന്നതിന് നിർബന്ധിക്കുന്നുവെന്ന നിരീക്ഷണം തെറ്റാണെന്ന് ഗവൺമെന്റ് ഹർജിയിൽ അറിയിച്ചു

കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് നടപടിയെന്ന് അധികൃതർ ന്യൂഡൽഹിയിൽ പറഞ്ഞു ഹോങ്കോങ്ങിലെ ഒരു കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന വജ്ങളും ആഭരണങ്ങളുമാണ് കണ്ടുകെട്ടിയത് മഞ്ചേശ്വരം എം

എ യായിരുന്ന പി

അബ്ദുൽ റസാ ഖിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കേസ് തുടരുന്നതിൽ തീരുമാനമറിയിക്കാൻ ഹൈക്കോടതി ബി

പി നേതാവ് കെ സുരേന്ദ്രനോട് ആവശ്യ പ്പെട്ടു അബ്ദുൽ റസാഖ് മരിച്ച സാഹചര്യത്തിലാണ് കോടതി ഇക്കാരൃം ആവശ്യപ്പെട്ടത് രണ്ടു ദിവസത്തിനകം മറുപടി നൽകാ മെന്ന് സുരേന്ദ്രൻ കോടതിയെ അറിയിച്ചു കേസ് വീണ്ടും പരിഗ ണിക്കുന്നതിന് ബുധനാഴ്ചത്തേക്ക് മാറ്റി വെച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ

ഡി എഫ് സ്ഥാനാർത്ഥിയായി രുന്ന പി

തെര ഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടന്നുവെന്നാരോപിച്ചാണ് സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി നൽകിയത് അലോക് വർമ്മയെ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്തു നിന്നും നീക്കിയ നടപടിക്കെതിരെ പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ സുപ്രീംകോടതിയിൽ ഹർജി നൽകി അലോക് വർമ്മ സമർപ്പിച്ച ഹർജികൊപ്പം തന്റെ ഹർജിയും പരിഗണിക്കണമെന്നും പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടു അലോക് വർമ്മയുടെ ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും കേന്ദ്രഗവൺമെന്റിനു വേണ്ടി അറ്റോർണി ജനറൽ കെ

വേണുഗോപാൽ കേസിൽ നാളെ ഹാജരാകും നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്റലിജൻസ് ബ്യൂറോ വഴി സി ബി ഐ ഡയറക്ടറായിരുന്ന അലോക് വർമ്മയെ അനാവശ്യമായി പിന്തുടരുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി

ബി ഐ യുടെ വഴിയിൽ തന്നെയാണ് ഇന്റലിജൻസ് ബ്യൂറോയും സഞ്ചരി ക്കുന്നതെന്ന് എ ഐ

സി മാധ്യമവിഭാഗം ചെയർമാൻ രൺദീപ് സുർജെവാല ന്യൂഡൽഹിയിൽ പറഞ്ഞു അതിനിടെ നിർബന്ധിത അവധിയിൽപോയ സി ബി ഐ മുൻ മേധാവി അലോക് വർമ്മയുടെ ന്യൂഡൽഹിയിലെ വീടിന് സമീപം സംശയ സാഹചര്യത്തിൽ കണ്ട നാലുപേരെ സുരക്ഷാ ഉദ്യോഗ സ്ഥർ പിടികൂടി ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരാണ് ഇവരെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ തിരുവനന്തപു രത്ത് തുടക്കമാകും

ഇത്തവണ റവന്യൂ ജില്ലാ തലത്തിൽ മൂന്നാം സ്ഥാനം നേടിയവരെ സംസ്ഥാന മീറ്റിൽ മത്സരിപ്പിക്കുന്നില്ല

പ്രളയം സംസ്ഥാനത്തിന് കനത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് മേള സംഘടി പ്പിച്ചിരിക്കുന്നത് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈ റ്റഡ് ജംഷഡ്പൂർ എഫ്സിയെ നേരിടും

ഇന്നലെ മഡ്ഗാവിൽ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയെ മറുപടിയില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് ഗോവ തോൽപ്പിച്ചിരുന്നു ഇതോടെ മൂന്ന് മത്സരത്തിൽ നിന്ന് ഏഴു പോയിന്റുമായി ഗോവ പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനത്തെത്തി അഖിലേന്ത്യാ പോസ്റ്റൽ ഫുട്ബോൾ ടൂർണ മെന്റ് തിങ്കളാഴ്ച മുതൽ അടുത്തമാസം രണ്ടുവരെ കോഴിക്കോട് മെഡി ക്കൽ കോളജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നടക്കും മുൻ ഇന്ത്യൻതാരം ഐ

കേരളം കർണാടക തമിഴ്നാട് പശ്ചിമ ബംഗാൾ ഒറീസ ഉത്തർപ്രദേശ് തുടങ്ങി എട്ട് തപാൽ സർക്കിളു കളിലെ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക

പാലക്കാട് എറണാകുളം മെമു സർവീസ് കളമശ്ശേരിയിൽ പാളം തെറ്റി ആളപായമില്ലെന്നാണ് റിപ്പോർട്ട് ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഒരു വിഭാഗം സ്വകാര്യ ബസ്സുടമകൾ നവംബർ ഒന്നുമുതൽ അനിശ്ചി തകാല സമരം നടത്തും

വയനാട് ജില്ലയിലെ മീനങ്ങാടി ഹരിതഗൃഹവാതകങ്ങളുടെ നിർഗമനത്തിന്റെയും കാർബൺ ശേഖരത്തിന്റെയും കണക്കെടു ക്കുന്ന രാജ്യത്തെ ആദ്യ പഞ്ചായത്തായി മാറി മന്ത്രി ഡോ

തിരുവനന്തപുരം ആസ്ഥാനമായ തണൽ പരിസ്ഥിതി സംഘടനയാണ് പഞ്ചായത്തിനുവേണ്ടി ഒരു വർഷത്തെ പഠനം നടത്തിയത്

കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക ജ നസമ്പർക്കപരിപാടി തുടങ്ങി ഇരിക്കൂർ പഞ്ചായത്ത് ഹാളിൽ കെ

ജോസഫ് എം

കേന്ദ്ര പദ്ധതികൾ സംബന്ധിച്ച് ബോധവൽക്കരണം സെമിനാർ പ്ര ദർശനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്

ഗവൺമെന്റ് ഓഫീസുകൾ ഉൾപ്പെടെ വിവിധ തൊഴിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരെ അപ കീർത്തിപ്പെടുത്തുകയും അപമാനകരമായ ആരോപണങ്ങൾ ഉന്ന യിച്ച് മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം ഷാഹിദാ കമാൽ പറഞ്ഞു പത്തനംതിട്ട തിരുവല്ലയിൽ വനിതാ കമ്മീഷന്റെ മെഗാ അദാലത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ